ഭീകരതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇന്തൃയുമായി സഹകരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിൽ പുൽവാമ ഭീകരാക്രമണത്തെ യു എൻ

അറസ്റ്റ് രേഖരപ്പെടുത്തിയ അഞ്ച് പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ബാഴ്സലോണ സ്പെയിൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻടൺ വനിതാ സിംഗിൾസ് കാർട്ടറിൽ ഇന്ത്യയുടെ മുഗ്ദ്ധ അഗ്രയ് ഇന്ന് ചൈനീസ് താരം ഹാൻ യുവിനെ നേരിടും

സിയോൾ സമാധാന പുരസ്കാരവും പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും ബ്ലൂ ഹൌസിൽ ഇന്ന് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകി

ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പ് വൃച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊറിയൻ ദേശീയ ശ്മശ്ാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു അന്താരാഷ്ട്ര സഹകരണത്തിൽ ആഗോള വളർച്ചയ്ക്കും മനുഷ്യ വിഭവശേഷി വികസനത്തിനുമായി ഏർപ്പെടുത്തിയ സിയോൾ സമാധാന പുരസ്കാരം ഡൽഹിക്കു മടങ്ങുന്നതിനു മുമ്പ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി യോൻസെ സർവ്വകലാശാലയുടെ സിയോൾ ക്യാമ്പസിൽ മഹാത്മാഗാന്ധി പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യതു ഭീകരവാദവും കാലാവസ്ഥാ വൃതിയാനവുമാണ് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീക്ഷണിയെന്നും മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയതായി നേരത്തെ ഇന്ത്യ കൊറിയ വ്യാപാര സെമിനാറിനെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു ദ്വിദിന സന്ദർശനാർത്ഥം ഇന്നലെയാണ് പ്രധാനമന്ത്രി ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ എത്തിയത്

മുംബൈയിൽ ഇന്തോ റഷ്യൻ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

പ്രതിരോധ നിർമ്മിത ബുദ്ധി മേഖലകളിലെ വൈദഗ്ദ്ധ്യം ഇന്ത്യയുമായി പങ്കുവെയ്ക്കാൻ റഷ്യ തയ്യാറാണെന്ന് ചടങ്ങിൽ സംസാരിച്ചു റ്ഷ്യൻ വ്യാപാര വ്യവസായ മന്ത്രി ഡെനിസ് മൻറ്റുറോപ്പ് പ്പറഞ്ഞു

വിശദാംശങ്ങളുമായി കവിതാ സുനു

വീരമൃത്യുവരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷാ കൌൺസിൽ അനുശോചനം അറിയിച്ചു

പുൽവാമ ഭീകരാക്രമണം അതിനീചവും ഭീരുത്വവും നിറഞ്ഞ നടപടിയാണെന്നും കൌൺസിൽ വിലയിരുത്തി സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയെ സുരക്ഷാ കൌൺസിൽ വിമർശിച്ചു

ഇതിനായി അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നേരത്തെതന്നെ വ്യക്തമാക്കിയിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവുമായി അന്താരാഷ്ട്ര സമൂഹം ഇതിനകം തന്നെ രംഗത്ത് വന്നിരുന്നു ജയ്ഷെ മുഹമ്മദ് തലവൻ മസീദ് അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ശുപാർശ ഫ്രാൻസ് ഉടൻതന്നെ ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയ്ക്ക് വയ്ക്കും

പ്രവിശ്യയിൽ ബോംബാക്രമണങ്ങൾ നൃടത്താനും സുന്നി മത പുരോഹിതന്മാരെ വധിക്കാനും ഇത് ഭീകരവാദ സംഘടനാ യൂണിറ്റുകൾ പദ്ധതിയിട്ടിരുന്നതായി പാർത്താ ഏജൻസി ഐ

ഇവരിൽ നിന്ന് റിമോട്ട് കൺട്രോൾഡ് ബോംബുകളുൾപ്പെടെ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്

രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സോപൂർ മേഖലയിൽ സംയുക്ത സുരക്ഷാസേന ഇന്നലെ രാത്രി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ലഷ്കർ ഇ തോയിബ ഭീകര സംഘടനയിലെ രണ്ടു പേരാണ് സുരക്ഷാസേനയ്ക്ക് നേരെ വെടി ഉതിർത്തത് എന്നാണ് സൂചന ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്

ഭാര്യയെ പെട്ടെന്ന് തലാഖ് ചൊല്ലുന്ന മുസ്തീം പുരുഷന് മൂന്ന് വർഷംവരെ തടവും പിഴയും ലഭിക്കുമെന്നാണ് ഓർഡിനൻസിലെ പ്രധാന വ്യവസ്ഥ പെട്ടെന്നുള്ള തലാഖ് ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നിയമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് വീണ്ടും ഓർഡിനൻസ് കൊണ്ടുവന്നത് വിവാഹിതരായ മുസ്ലീം വനിതകളെ സംരക്ഷിക്കുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഓർഡിനൻസ് ഇന്ത്യൻ മെഡിക്കൽ ഭേദഗതി രണ്ടാം ഓർഡിനൻസ് കമ്പനീസ് ഭേദഗതി രണ്ടാം ഓർഡിനൻസ് അനധികൃത നിക്ഷേപം തടയൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച മറ്റു ഓർഡിനൻസുകൾ

കേന്ദ്രമന്ത്രി നിതീൻ ഗഡ്കരിയാണ് നിലപാട് വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

രവി നദിയിലെ ഷാഹ്പുർകണ്ടി ഡാം നിർമ്മാണം ആരംഭിച്ചതായും ഉജ്ജ് പദ്ധതി കൂടി നടപ്പിലാകുന്നതോടെ ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ജലം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു രവി ബിയാസ് നദികളെ ബന്ധിപ്പിച്ചുള്ള രണ്ടാമത്തെ ഡാമിലൂടെ അവശേഷിക്കുന്ന ജലം മറ്റ് നദീതട സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതികളെല്ലാം തന്നെ ദേശീയ പദ്ധതികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കരാർ പ്രകാരം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇൻഡസ് ത്സലം ചെനാബ് നദീജലം ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം നിലവിൽ പാകിസ്ഥാനാനുള്ളത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി

യിലെ തർക്കങ്ങൾ പരിഹരിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക തുടങ്ങിയവയാണ് ഓംബുഡ്സ്മാന്റെ ചുമതല

സി സി

യിൽ ഒരു ഓംബുഡ്സ്മാനെ അടിയന്തരമായി നിയമിക്കുന്നതിന്റെ ആവശ്യമുണ്ടെന്ന് സുഫ്ട്രീംകോടതി നിയോഗിച്ച ഭരണസമിതി കോടതിയെ അറിയിച്ചു

ടൂർണമെന്റിൽ നിലനിൽക്കുന്ന ഏക ഇന്ത്യൻ മത്സരാർഥിയാണ് മുഗ്ധ അഗ്രേ

എറണാകുളം ക്രൈംബ്രാഞ്ച് എസ്പി പി

മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കാസർകോട് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ സലിം എന്നിവരാണ് സംഘത്തിലുള്ളത് അതിനിടെ ഇന്നലെ അഞ്ചുപേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സജി ജോർജ്ജിനെ ഇന്നലെ ആറ് ദിവസത്തേക്ക് പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസിൽ ഇതുവരെ ഏഴുപേരാണ് അറസ്റ്റിലായത്

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും പാലക്കാട്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രഭാരിമാർ വിസ്താരക് കൺവീനർമാർ ജില്ലാ അധ്യക്ഷന്മാർ എന്നിവരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും കോട്ടമൈതാനത്തു നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പേജ് പ്രമുഖർ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെതടക്കമുള്ള ബൂത്തുതല കൺവീനർമാർ എന്നിവരെ അമിത്ഷാ അഭിസംബോധന ചെയ്യും